ശ്രീനഗറിലും ലേയിലും ഇ എസ് ഐ

വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഇന്ത്യയുടെ സൌരഭ് ശർമ ജപ്പാന്റെ മിനോരു കോഗയെ നേരിടും

സ്വിറ്റ്സർലന്റിലെബേണിൽ ഇന്ത്യ സ്വിറ്റ്സർലൻഡ് വ്യാപാര സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽവിവരങ്ങളുമായിസുവർണ്ണ വോയിസ് ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങളെ കുറിച്ചറിയാൻ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രിഡ് ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുന്നതിന് രാഷ്ട്രപതി സ്ഥിസ് കമ്പനികളെ സ്ഥാഗതം ചെയ്തു

മാനവ മൂലധനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകോത്തര നിലവാരം പുലർത്തുന്നുമുണ്ട് അതിനാൽ ഇരു രാജ്യങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനം മൂലധനം സാങ്കേതികവിദ്യ ശ്രീസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ പുരസ്പ്പർം സഹായകമാകുമെന്നും ശ്രീരാംനാഥ് കോവിന്ദ് അഭിപ്രായ്ക്പ്പെട്ടു്

സ്വിറ്റ്സർലങ്ടും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തികവും സാങ്കേതികവുമായ ഇടപ്പെട്ലുകൾ കൂടുതൽ ദൃഢമാക്കണമെന്നും സ്ഥിറ്റ്സർലന്റ് പ്രസിഡന്റ് മോററുമായുളള കൂടിക്കാഴ്ചാവേളയിൽ രാഷ്ട്രപതി പറഞ്ഞു

സഫ്ദർജംഗ്ആശുപത്രിയിൽയുനാനി മെഡിക്കൽസെന്ററിന്റെയും സിദ്ധ ക്ലിനിക്കൽറിസർച്ച്യൂണിറ്റിന്റെയുംഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നുഅദ്ദേഹം ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായിഒന്നരലക്ഷംഹെൽത്ത് ആൻഡ് വെൽനസ്സ്കേന്ദ്രങ്ങൾ രാജ്യത്ത്സ്ഥാപിക്കാനാണ്ഗവൺമെന്റ്ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു

കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് ഗാങാറിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന ഇ

ഐ കോർപ്പറേഷൻ യോഗത്തിൽ ഈ ആശുപത്രികൾക്ക് തത്തിൽ അംഗീകാരം നൽകി ഇതിലൂടെ ഇ

ഐ ഗുണഭോക്താക്കൾക്ക് ആയുഷ്മാൻ ഭാരത് നിരക്കിലുള്ള പണരഹിതമായ ദ്ദിതീയ ത്രിതീയ ആരോഗൃ രക്ഷാ സേവനങ്ങൾ ലഭ്യമാകും

ലേല്ത്തിലൂടെ സമാഹരിക്കുന്ന തുക ഗംഗാനദിയുടെ പുനരുജ്ജീവനത്തിന്റായിട്ടും

സേവാ സപ്താ എന്ന പരിപാടിആഭ്യന്തരമന്ത്രി അമിത്ഷാഉദ്ഘാടനം ചെയ്തു

സന്ദേശവുമായി പൂനെയിൽ നിന്നും യാത്ര തിരിച്ച ജൽദൂത് എന്ന വാൻ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തും ചടങ്ങിൽ ജലസംരക്ഷണ പ്രതിജ്ഞയും ശ്രീ ജാവ്ദേക്കർ ചൊല്ലിക്കൊടുത്തു

കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി മരട് നഗരസഭയ്ക്ക് പ്രൂ മുന്നിൽ സി

കാഴ്ചക്കാരുടെ മനസ്സ് കീഴടക്കി രാത്രിയിൽ ് ഈ പുലികൾ മടങ്ങുന്നതോടെ ആണ് തൃശ്ശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം ആകുന്നത്

കയറ്റുമതി കുറയ്ക്കുന്നതിനും ആഭ്യന്തരവിപണിയിൽ വില പിടിച്ചുനിർത്തുന്നതിനുമാണ് ഈ നടപടി കൂടുതൽ വിവരങ്ങളുമായി സുവർണ വോയ്സ് സവാള പൂഴ്ത്തിവയ്ക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാനമായും കേന്ദ്ര ഉള്ളി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര കർണ്ണാടക എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കം ഉൽപ്പാദനത്തിൽ കുറവ് വരുന്നതിന് കാരണമായി

ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള എം

സി പാകിസ്ഥാനിൽ നിന്ന് ഉള്ളി ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും വിതരണക്കാരെ വിലക്കുകയും ഇരുപതിനായിരം ടൺ ഉള്ളി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ടെണ്ടർ പരിഷ്ക്കരിക്കുകയും ചെയ്തിരുന്നു

ടൂർണമെന്റിലെ ഏക ഇന്ത്യൻ പ്രതീക്ഷയാണ് സൌരഭ് ചൈനയുടെ സൺ ഫി സിയാങ്കും തായ്വാൻ താരം ലിൻ യു സിയാനും തമ്മിലാണ് രണ്ടാമത്തെ സെമി ഫൈനൽ

ഡെൻമാർക്കിന്റെ കിം ബ്രൂണിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സെൻ പരാജയപ്പെടുത്തിയത്

ഫൈനലിൽ ലക്ഷ്യസെൻ ഡെൻമാർക്കിന്റെ രണ്ടാം സീഡ് വിക്ടർ സ്വെൻസനെ നേരിടും

സൌദിയുടെ കിഴക്കൻ പ്രവിശൃയിലെ ദമാമിനടുത്തുള്ള എണ്ണ സംസ്കരണശാലകളിലാണ് സ്ഫോടനം നടന്നത്

അരാംകോയെ ലക്ഷ്യമിട്ട് നേരത്തെ ഹൂതി വിമതരുടെ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുണ്ട്

തീപിടിത്തം നിയന്ത്രണവിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു

ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ഹിന്ദി ഭാഷ പ്രോത്സാഹിപ്പിക്കുന്നതിന് മികച്ച പ്രവൂർത്തൂനം കാഴ്ചവച്ച വിവിധ വകുപ്പ് മന്ത്രാലയങ്ങൾ ഓഫീസ് തലിങ്ങളിലെ പ്രമുഖർ എന്നിവർക്ക് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യഭാഷ്ട്ര പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഭാഷയുടെ ലാളിത്യം ചടുലി്തു സഭ്യത എന്നിവ അവതരണത്തിൽ മനോഹരമായി സംയോജിപ്പിക്കിരിക്കുന്ന ഭാഷയാണ് ഹിന്ദി എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്